മാക്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും

ഹരിയാനയിലെ കർഷകരുട്ടെ പ്രവർത്തനം മാതൃകാപരമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോപ്പിന്ദ്

കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പകൽ ഹർത്താൽ

ബോക്സിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾ അഞ്ച് മെഡലുകൾ ഉറപ്പിച്ചു

കൂടിക്കാഴ്ചയ്ക്കു ശേഷം നിരവധി കരാറുകളിലും രാജ്യങ്ങളും ഇരു ഒപ്പുവെയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർജന്റീനിയൻ പ്രസിഡന്റ് രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്

ഇന്നലെയാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാറ്യി അദ്ദേഹം ഇന്ത്യയിലെത്തിയത്

ഹരിയാനയിലെ സോനിപ്പതിലെ ഗന്നൂരിൽ നാലാമത് കാർഷിക നേതൃത്വ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി വിശദാംശങ്ങളുമായി ഗോപകുമാർ

ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുക വഴി സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പ് ഉറപ്പാക്കാനാകുമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഹരിയാന കാർഷിക സർവ്വകലാശാലാ വൈസ് ചാൻസലർക്ക് കിസാൻ രത്തൻ പുരസ്ക്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എഫ് തീരുമാനിച്ചു അടിസ്ഥാന സേനാ നീക്ക നടപടികളിൽ ഉടൻ തന്നെ ചില പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സി ആർ

എഫ് ഡയറക്ടർ ജനറൽ ആർ

സേനാ നീക്കത്തിലുപരി അതിന്റെ സമയക്രമത്തിലും ഇടത്താവളങ്ങൾക്കും ചില മാർഗ്ഗരേഖകൾ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സേനാ നീക്കങ്ങളിൽ പൊതു വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തിവയ്ക്കുമെന്നും ഡയറക്ടർ ജനറൽ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സേനയുടെ പുതിയ തീരുമാനം

യാത്രാസമയം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആവശ്യമെങ്കിൽ വ്യോമ ഗതാഗതം ഉറപ്പാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു

ആർ

എഫ് ജവാന്മാരുടെ യാത്ര വ്യോമമാർഗമാക്കാനുള്ള അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം ജമ്മു ശ്രീനഗർ സെക്ടറിൽ സി ആർ

എഫ് വ്യോമ ഗതാഗതം അനുവദിച്ചില്ലെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ആഭ്യന്തര മന്ത്രാലയം വൃക്തമാക്കി

ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് രാജസ്ഥാനിലെ ജയ്പൂർ സന്ദർശിക്കും

ജയ്പൂരിൽ ശക്തി നഗരത്തിൽ നടക്കുന്ന മറ്റെട്ടരു പരിപാടിയായ മേരാ ബൂത്ത് സബ്സേ മസ്ബൂത്ത് എന്ന പരിപാടിയിലും അധ്യക്ഷൻ പങ്കെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭജൻലാൽ ശർമ്മ അറിയിച്ചു

ആർ

എഫ് മുന്നറിയിപ്പ് സമൂഹത്തിൽ വിദ്വോഷം പരത്താൻ ചില ചിദ്രശക്തികൾ ചിത്രങ്ങൾ ഉപയോഗിച്ച് ശ്രമം നടത്തുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും സി

എന്ന ഇ മെയിൽ വിലാസത്തിൽ അറിയിക്കണമെന്നും സി

എഫ് അറിയിച്ചു

മൊറോക്കൻ വിദേശകാര്യമന്ത്രി നാസർ ബൌറീത്ത രാജാവ് മുഹമ്മദ് ആറാമൻ പ്രധാനമന്ത്രി സാദ് ദിൻ അൽ ഒത്മാനി എന്നിവരെ ശ്രീമതി സുഷമ സ്വരാജ് സന്ദർശിക്കും ഭീകരവിരുദ്ധ പ്രവർത്തനം ഭവനകാര്യം യുവജനക്ഷേമം എന്നീ വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണാ പത്രത്തിൽ ഒപ്പിടും

ഈ വിഷയത്തിൽ തുടർന്നുള്ള ശക്തമാ്യ നട്ട്പടികൾക്കാണ് കരാറെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു

വിദേശ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ കേന്ദ്രമന്ത്രി സ്പെയിനും സന്ദർശിക്കും

നാല് ദിവസം വാദം തുടരും ഇന്ത്യയും പാകിസ്ഥാനും അവരവരുടെ വാദങ്ങൾ മുന്നോട്ടുവയ്ക്കും

പാകിസ്ഥാൻ സൈനിക കോടതിയിലെ വിചാരണ പ്രഹസനമായിരുന്നു എന്നാണ് ഇന്ത്യയുടെ ആരോപണം

എന്നാൽ ബിസിനസ് ആവശ്യത്തിനായി ഇറാനിൽപ്പോയ ജാദവിനെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയത്രാണ്ണെന്നാണ് ഇന്ത്യയുടെ വാദം

കല്യോട്ടേ കൃഷ്ണന്റെ മകൻ കൃപേഷ്സത്യനാരായണന്റെ മകൻ ശരത്ലാൽഎന്നിവരാണ് മരിച്ചത് ഇന്നലെ സന്ധ്യയ്ക്ക് കല്യോട്ട് സ്കൂൾ ഏച്ചിലടുക്കം റോഡിൽ കാറിലെത്തിയ സംഘമാണ് യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു

യുവും സംസ്ഥാന വ്യാപകമായി ഇന്ന് വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം നൽകിയിട്ടുണ്ട്

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു ഭരണത്തിന്റെ മറവിൽ സി

എം പ്രവർത്തകർ നടത്തിയ ആസൂത്രിത കൊലപാതകമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് കാസർകോട്ടേയ്ക്ക് പോകും ജനമഹായാത്രയുടെ തിങ്കളാഴ്ചത്തെ പരിപാടികൾ പൂർണമായും മാറ്റിവച്ചു അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സി

ഐഎം ന് പങ്കില്ലെന്ന് പാർട്ടി കാസർകോഡ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ പറഞ്ഞു